ലോകത്തെ നാലാമത്തെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പിന്നിട്ടു ഇന്ത്യയിൽ രോഗമൂക്തി നിരക്കിൽ വർദ്ധന

പരിശീലനത്തിനിടെ മിഗ് വിമാനം അറബിക്കടലിൽ ന് തകർന്നു വീണു പൈലറ്റിനെ കാണാതായി

എസ് എൽ

ടി

ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും

മൂന്നാമത് ആഗോള പുനരുപയോഗ ഊർജ നിക്ഷേപക സംഗമം ആർ

ഇൻവെസ്റ്റിന്റെ ഉദ്ഘാടനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത് പുനരുപയോഗ ഊർജ്ജ ഉൽപാദന ശേഷി ഇനിയും വർധിപ്പിച്ച് രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിന് ശേഷം പ്രതീക്ഷിച്ചതിലും മികച്ച പുരോഗതിയാണ് ഇന്ത്യിൻ സമ്പദ് വൃവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ച സാധ്യതകൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉത്സവ കാലത്തിനു ശേഷം സാധനങ്ങളുടെ ആവശ്യകതയിൽ ഉള്ള സ്ഥിരത സംബന്ധിച്ച് ശ്രദ്ധ കൈവിടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാജ്യത്തെ സാമ്പത്തിക വ്യാപാര ഇടപാടുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ അടക്കം എട്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോവിഡ് കേസുകളിലെ വർദ്ധനവ് പരിഗണിച്ചു സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു

രാജ്യത്തെ രോഗമുക്തി നിരക്കിൽ വർധന

രോഗബാധിതരുടെ എണ്ണത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

ഉയർന്നതോതിലുള്ള പരിശോധനകൾ രോഗികളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി കുറഞ്ഞ മരണ നിരക്കിനും ഇത് വഴിതെളിക്കും

പൈലറ്റുമാരിൽ ഒരാളെ രക്ഷപ്പെടുത്തി

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സീഷെൽസ് പ്രസിഡന്റ് വേയ്വൽ രാം കലവനുമായി കൂടിക്കാഴ്ച നടത്തും

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യും

ഒരു വർഷത്തേയ്ക്ക് സഹകരണ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണസമിതിക്കായിരുന്നു ചുമതല

വിദേശചരക്കൂ വിമാനങ്ങൾ പ്രത്യേകാനൂമതിയുള്ള ചാർട്ടേഡ് സർവീസുകൾ എന്നിവയ്ക്ക് വിലക്ക് ബാധകമല്ലെന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് അറിയിച്ചു വന്ദേഭാരത് വിമാനങ്ങളും വിവിധ രാജ്യങ്ങളുമായുള്ള യാത്രാകരാറിന്റെ ഭാഗമായുള്ളവയും സർവീസ് നടത്തും

അടുത്ത മാസം മൂന്നിന് കർഷകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെട്ടിന്നും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനാവുമെന്നും ശ്രീ

ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നടക്കുന്ന സൈക്കിൾ പര്യടനത്തിന്റെ ഭാഗമായി സാമൂഹിക അകലം മാസ്ക്കുകളുടെ ഉപയോഗം തുടങ്ങിയവ സംബന്ധിച്ച് രാജ്യത്തെ ഗ്രാമീണർക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് പ്രതിരോധ വക്താവ് വിംഗ് കമാൻഡർ പുനീത് ചദ്ധ അഭിപ്രായപ്പെട്ടു

കഴിഞ്ഞ ആറ് വർഷമായി സംസ്ഥാനത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും നിതിൻ ഗഡ്കരി പറഞ്ഞു

നാലാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്തല ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാ സഹകരണ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ എത്തുന്നത്

കോവിഡ് മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിലും ഇന്തൃ നേപ്പാൾ ബന്ധത്തിലുണ്ടായ പുരോഗതിയിൽ ഇരുവരും സംതൃപ്തി രേഖപ്പെടുത്തി നേപ്പാൾ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവരുമായി വിദേശകാര്യസെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ഡൽഹിയിൽ അനുഭവപ്പെട്ട അന്ത്രീക്ഷ വായു മലിനീകരണം ദീപാവലി ആഘോഷങ്ങളെ തുട്ർന്ന് വർദ്ധിക്കുകയായിരുന്നു

മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം

ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും എ ടി

ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും